ദേദ എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്ന് തൃശൂർ ജില്ലയിൽ പ്രചാരണം നടത്തും ചാലക്കുടി ഇരിങ്ങാലക്കുട ചാവക്കാട് എന്നിവിടങ്ങളിലാണ് രാവിലെ പ്രചാരണം ഉച്ച കഴിഞ്ഞ് വടക്കാഞ്ചേരിയിലും തൃശൂരിലും റോഡ് ഷോയും ഉണ്ടായിരിക്കും ദേദ വോട്ടർപട്ടികയിലെ ഇരട്ടിപ്പും ക്രമക്കേടുകളും ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും

വോട്ടർപട്ടികയിൽ ഇനി മാറ്റം വരുത്താനാകില്ലെന്നും സത്യവാങ്മൂലത്തിൽ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ദേദ പശ്ചിമ ബംഗാളിലും അസമിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ

ദേദ നാൽ സംസ്ഥാനങ്ങളിലേയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേയും നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇലക്ടറൽ ബോണ്ടുകളുടെ വിതരണം നാളെ തുടങ്ങും

രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുന്ന സംഭാവനകളിൽ സുതാര്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ടറൽ ബോണ്ടുകൾ തയ്യാറാക്കിയത് ദേദ കൊല്ലം ജില്ലയിൽ സ്വീപും സന്നദ്ധ സംഘടനയായ ഹായും ചേർന്ന് തെരഞ്ഞെടുപ്പ് ബോധവത്കരണത്തിന്റെ ഭാഗമായി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു മാതൃകാ പോളിംഗ് ബൂത്തും കലാസന്ധ്യയും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ദര കല്പറ്റ നിയോജക മണ്ഡലത്തിൽ നിന്ന് രേഖകളില്ലാതെ കൊണ്ടുപോവുകയായിരുന്ന മൂന്നര ലക്ഷം രൂപ പിടികൂടി ഫ്സയിംഗ്സ് സ്ക്വാഡും ലക്കിടി സ്റ്റാറ്റിക് സർവെയിലൻസ് ടീമും ചേർന്നാണ് പണം കണ്ടെടുത്തത് ദ്ദേ ജനങ്ങൾക്കു വേണ്ടി ആർക്കാണ് കൂടുതൽ നല്ലത് ചെയ്യാൻ സാധിക്കുന്നത് എന്ന കാര്യത്തിൽ മത്സരിച്ച് ജനഹൃദയങ്ങൾ കീഴടക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിയണമെന്ന് മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു ഭരണപക്ഷം മാത്രമല്ല പ്രതിപക്ഷവും ഈ പ്രക്രിയയിൽ പങ്കെടുക്കണമെന്നും അദ്ദേഹം വടകരയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ പറഞ്ഞു

ദേദ കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാരമ്യത്തിലെത്തി

കോവിൻ പോർട്ടൽ ആരോഗ്യ സേതു ആപ്സിക്കേഷൻ എന്നിവയിൽ രജിസ്റ്റർ ചെയ്തും വാക്സിൻ കേന്ദ്രങ്ങളിൽ വൈകീട്ട് മൂന്നിന് ശേഷം നേരിട്ടെത്തി രജിസ്ട്രേഷൻ നടത്തിയും കുത്തിവെയ്പ് ഉറപ്പു വരുത്താം രജിസ്ട്രേഷന് അംഗീകൃത തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാണ്

ദേദ കൊവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധത്തിന് ജില്ലാതല കർമ്മ പരിപാടി തയ്യാറാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടു

കോവിഡ് കേസുകളുടെ മാപ്പിംഗും അവലോകനവും കണ്ടൈൻമെന്റ് സോൺ രൂപീകരണവും അടക്കം നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി രാജേഷ് ഭൂഷൺ നിർദേശിച്ചു കോവിഡിനെതിരെ ആദ്യ ഘട്ടത്തിൽ സ്വീകരിച്ച നടപടികളിലേക്ക് മടങ്ങിപ്പോകാനാണ് നിർദേശം ജനങ്ങൾക്കിടയിൽ ബോധവത്കരണം നടത്താൻ ജനപ്രതിനിധികളെയും പ്രാദേശിക സ്വാധീനം പുലർത്താവുന്നവരെയും പ്രമുഖരെയും നിയോഗിക്കണമെന്നും കത്തിൽ പറയുന്നു

ദേദ ഓക്സിജൻ സിലിണ്ടറുകൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് കേന്ദ്രഗവ സെപ്റ്റംബർ വരെ പെർമിറ്റ് ഒഴിവാക്കി കോവിഡിനെതിരായ പോരാട്ടത്തിന് ശക്തി പകരാനാണ് തീരുമാനമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ പറഞ്ഞു ദര വയനാട്ടിലെ മാറ്റൊലി കമ്മ്യൂണിറ്റി റേഡിയോ കേന്ദ്രവാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ പുരസ്കാരത്തിന് മൂന്നാം തവണയും അർഹരായി